ഒരു കോടി ഏഴ് ലക്ഷം പിന്നീട്ടു കേരളത്തിന് കൂടുതൽ കോവിഡ് വാക്സിൻ അ് സുവദിക്കണമെന്ന് മന്ത്രി കെ

ഐ

എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സി യെ നേരിടും

ദേശീയ ഭാരവാഹീക്ക്ൾക്ക് പുറമെ ബി ജെ

യോഗത്തിന് മുന്നോടിയായി ബി

പ്രസിഡന്റ് ജെ

കൂടിക്കാഴ്ചയിൽ ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയും ചർച്ചയായി പുതിയ കാർഷിക നിയമത്തിനെതിരായ കർഷകരുടെ പ്രതിഷേധവും അസ്സം പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിലെ പ്രധാന വിഷയങ്ങളാണ്

അസമിലെ ധേമാജിയിൽ എണ്ണ പ്രകൃതി വാതക മേഖലകളിലെ സൂപ്രധാന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും

പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിയ്ക്കും നോവാപാറയിൽ നിന്നും ദക്ഷിണേശ്വറിലേക്കുള്ള ഇരട്ടിപ്പിച്ചു മെട്രോ റെയിൽ പാതയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും

കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് സംഭരണം നിലവിൽ തുടരുകയാണ്

പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും

കഴിഞ്ഞ പ്ര്ർഷം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാ്ത്തിലൂടെ പരമ്പരാഗത കളിപ്പാട്ട നിർമിതി പ്രോത്സാഹിപ്പിക്കണമെന്റ് ക്രിഅദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് വാരണാസി ്മണ്ഡലത്തിലെ കളിപ്പാട്ട നിർമ്മാതാക്കൾ മേളയുമായി മുന്നോട്ടു വന്നത്

പൂരോഗപ്രതിരോധത്തിന്റെ പ്രധാനമാർഗ്ഗം വാക്സിനേഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

ശൈലജ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

അവസരം നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും അവസരം നൽകുക മൂന്നാമത്തെ മുൻഗണനാ ഗ്രൂപ്പിന്റെ വാക് സിനേഷനായി കൂടുതൽ വാക്സിൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രായമായ ജനസംഖ്യയുള്ളത് കേരളത്തിലാണ്

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യിക് നാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും

പ്രതിപകള് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വരൃ കേരള് ്യാത്ര് തലസ്ഥാനത്ത് എത്തി ഇന്ന് തിരുവനന്തപുരത്ത് പര്യടനും തു്ടരും

് കേർളത്തിൽ മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ഇന്റർനെറ്റ് പ്പിഴ് ഭാഷാപഠനം സാധൃമാക്കാനായി ആവിഷ്ക്കരിച്ചിട്ടുള്ള മ്ലൂ ്യാ്ളം ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി എ

ബാലൻ നിർവഹിക്കും

ഇന്ധനവില വർദ്ധന ആഗോള പ്രശ്നമാണെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില സംബന്ധിച്ച് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് തീരുമാനമെടുക്കേണ്ട തെന്നും അവർ പറഞ്ഞു ക്ഷേമരാഷ്ട്ര സ്ക്ക്ല്പ്പത്തിലൂന്നിയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നതെന്ന് പറഞ്ഞൂ പ്രകേന്ദ്രമന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് സർക്കാർ മുൻഗണന നൽകുന്ന കാര്യം ചൂണ്ടിക്കാട്ടി

പുരുഷ വിഭാഗം ഡബിൾസിൽ രാജീവ് റാം ജോ സാലിസ് ബെറി സഖ്യം ക്രൊയേഷ്യൻ ഇവാൻ ഡോഡിക് സ്തൊവാക്യൻ താരം ഫിലിപ്പ് പൊളാസെക് ടീമുമായി ഏറ്റുമുട്ടും

ഇന്നലെ വനിത സിംഗിൾസിൽ ജാപ്പനീസ് താരം നവോമി ഒസാക നാലാം കിരീടം സ്വന്തമാക്കിയിരുന്നു അമേരിക്കയുടെ ജന്നിഫർ ബ്രാഡിയെയാണ് ഒസാക പരാജയപ്പെടുത്തിയത്

ഫുട്ബോളിൽ ഇന്നല്ലൂ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയും പ്രിമു് ബൈ സിറ്റിയെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയ്ത്

വിഷയത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാനിയൻ ഉപവിദേശകാര്യമന്ത്രി വ്യക്തമാക്കി

ഫിലിപ്പൈൻസിൽ ഇരുപതോളം ചുഴലിക്കാറ്റുകളാണ് പ്രതിവർഷം വീശീയടിക്കുന്നത്